പ്രാബല്യം ഈ മാസം എട്ടുമുതൽ ത ആശുപത്രികളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവർക്ക് സ്മാർട്ട് ഫോണുകളും ടാബ് ലറ്റുകളും ഉപയോഗിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

ത ഇന്ന് രക്ഷാബന്ധൻ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ആശംസകൾ നേർന്നു വാർത്തകൾ വിശദമായി രാജ്യത്ത് എത്തുന്ന അന്തർദേശീയ യാത്രക്കാർക്കായി ആരോഗ്യ മന്ത്രാലയം പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഈ മാസം എട്ടിന് ഇത് നിലവിൽ വരും യാത്രയ്ക്ക് മൂന്നുദിവസം മുമ്പ് ന്യൂഡൽഹി എയർപോർട്ട് ഡോട്ട് ഇൻ എന്ന ഓൺലൈൻ പോർട്ടലിൽ യാത്രക്കാർ കോവിഡ് സംബന്ധിച്ച സത്യപ്രസ്താവന നൽകേണ്ടതാണ്

ഇതിൽ ഏഴ് ദിവസം സ്വന്തം ചെലവിൽ സ്ഥാപന ക്വാറന്റൈനും ഏഴ് ദിവസം വീട്ടിൽ സ്വയം നിരീക്ഷണവും ആയിരിക്കും

ആർ ടെസ്റ്റ് നെഗറ്റീവായാലും സ്ഥാപന ക്വാറന്റൈനിൽ ഇളവ് അനുവദിക്കും രുമ ആശുപത്രികളിൽ കോവിഡ് ചികിത്സയിൽ കഴിയുന്നവർക്ക് സ്മാർട്ട് ഫോണും ടാബ് ലറ്റുകളും ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കത്തയച്ചു കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ആശയ വിനിമയം നടത്താൻ കഴിയുന്നത് വഴി രോഗികൾക്ക് മാനസിക ധൈര്യം ലഭിയ്ക്കുമെന്ന് കത്തിൽ പറയുന്നു ചില ആശുപത്രികളിൽ മൊബൈൽ ഫോണുകൾ അനുവദിക്കില്ലെന്ന് കാണിച്ച് നൽകിയ പരാതികളെത്തുടർന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഫോണും ടാബ് അണുമുക്തമാക്കണമെന്നും ലറ്റും സംസാരിക്കാൻ പ്രത്യേക സമയം നൽകണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കയച്ച കത്തിൽ നിർദ്ദേശമുണ്ട് രുമ കർണ്ണാടക മുഖ്യമന്ത്രി ബി

ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യെദ്യൂരപ്പയുടെ ആരോഗ്യനില തൃപ്തികരമാണ് തമിഴ്നാട് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിനും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്

ആകാശവാണി പ്രതിനിധി പി

അടിയന്തര പ്രധാന്യം നൽകേണ്ട കേസുകൾ മാത്രം ഓൺലൈനിൽ പരിഗണിയ്ക്കും

ഏതാനും തടവുകാർക്ക് കോവിഡ് ബാധിച്ചതിനെത്തുടർന്ന് ജയിലിലുണ്ടായിരുന്ന എല്ലാവരും ആന്റിജൻ ടെസ്റ്റ് നടത്തിയതിൽ നിന്നാണ് കൂടുതൽ കോവിഡ് ബാധിതരെ കണ്ടെത്തിയത് രുമ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ ഓരോ ഡിവിഷനിലും കോവിഡ് സ്രവപരിശോധനയ്ക്ക് കിയോസ്ക് തുടങ്ങാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു

കോവിഡ് നിയന്ത്രണം ലംഘിച്ച് തൊടുപുഴയിൽ മീൻ മൊത്തവ്യാപാരം നടത്താനെത്തിയ ട്രക്ക് പൊലീസ് പിടിച്ചെടുത്തു വാഹന ഉടമ ജീവനക്കാർ മത്സ്യം വാങ്ങാനെത്തിയവർ എന്നിവരുൾപ്പെടെ നിരവധി പേർക്കെതിരെ കേസെടുത്തു

രുമ കോവിഡ് പോരാളികൾക്ക് രാജ്യത്തിന്റെ ആദരവുമായി വൈകിട്ട് നാലര മുതൽ ആറര വരെ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മ്യൂസിക്കൽ കൺസേർട്ട് സംഘടിപ്പിക്കും കേന്ദ്ര ഗവൺമെന്റ് ചരിത്ര പ്രധാന മേഖലകളിൽ നടത്തുന്ന ലൈവ് പരമ്പരയിൽ കേരളത്തിലെ ഏക പരിപാടിയാണ് കോഴിക്കോട്ടേത്

പൊലീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടി ദൂരദർശൻ സംപ്രേഷണം ചെയ്യും

അവശ്യ സാധനങ്ങൾ വാങ്ങാൻ രാവിലെ എട്ടുമുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ സമയം നൽകിയിട്ടുണ്ട്

ഏഴ് വാർഡുകൾ പുതുതായി കണ്ടെയ്ൻമെന്റ് സോണാക്കി

മന്ത്രി കെ

ആർദ്രം മിഷന്റെ ഭാഗമായാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയത്

രമേ സഹോദരീ സഹോദര ബന്ധത്തിലെ ഊഷ്മളതയും വാത്സല്യവും ഓർമ്മിപ്പിച്ച് രക്ഷാബന്ധൻ ഇന്ന് ആഘോഷിക്കുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ജനങ്ങൾക്ക് രക്ഷാബന്ധൻ ആശംസകൾ നേർന്നു സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും ഉൌന്നൽ നൽകുന്ന ചടങ്ങാണ് രാഖി ബന്ധിക്കൽ എന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു സ്ത്രീകളുടെ അന്തസ്സും ബഹുമാനവും ഉറപ്പാക്കുമെന്ന് ഈ ആഘോഷ വേളയിൽ എല്ലാവരും പ്രതിജ്ഞയെടുക്കണമെന്നും രാഷ്ട്രപതി നിർദ്ദേശിച്ചു സഹോദരീ സഹോദരന്മാർക്കിടയിലെ സ്നേഹവും വാത്സല്യവും വിശുദ്ധ ബന്ധവും ആദരിക്കുന്നതാണ് രക്ഷാബന്ധൻ ചടങ്ങെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു

ദേദ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജിയും സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് യു ഡി

രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് സത്യഗ്രഹം

ഐ

സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് സൂമിലൂടെ സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരം കന്റോൺമെന്റ് ഹൌസിലും കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ

സി സി ആസ്ഥാനത്തും സത്യഗ്രഹമിരിക്കും

ഡി എഫ് എം പിമാർ എം എൽ എമാർ ചെയർമാൻമാർ കൺവീനർമാർ ഡി സി സി പ്രസിഡന്റുമാർ നേതാക്കൾ എന്നിവർ അവരവരുടെ വീടുകളിലോ ഓഫീസുകളിലോ ആയിരിക്കും സത്യഗ്രഹം നടത്തുക സത്യഗ്രഹത്തിന്റെ സമാപനം എ

സി ജനറൽ സെക്രട്ടറി കെ

പി ഉദ്ഘാടനം ചെയ്യും

എൽ ക്രിക്കറ്റ് മത്സരങ്ങൾ യു എ ഇയിൽ നടത്താൻ ഗവേണിംഗ് കൌൺസിൽ യോഗം തീരുമാനിച്ചു

ദുബായ് ഷാർജ അബുദാബി എന്നിവിടങ്ങളായിരിക്കും വേദികൾ രുമ എഴുത്തുകാരനും ബി എം എസ് മുൻ സംസ്ഥാന സഹകാര്യദർശിയുമായ ടി സുകുമാരൻ കോഴിക്കോട്ട് നിര്യാതനായി

ജനസംഘത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന ടി സുകുമാരൻ ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് മാപ്പിള ലഹള പശ്ചാത്തലമാക്കിയ ബലിമൃഗങ്ങൾ ഇന്ത്യ വിഭജനം അടിസ്ഥാനമാക്കിയ രസിക്കാത്ത സത്യങ്ങൾ ചൈനീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട ഹിമവാന്റെ മക്കൾ എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ രചനകളാണ് രുമ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

കേരള കർണ്ണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻ പിടിക്കാൻ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി